കെ ശൈലജ രോഗം കൂടുമ്പോൾ മരണ നിരക്കും കൂടുമെന്ന് മന്ത്രി

വൈകീട്ട് ഏഴിന് രാഷ്ട്രപതിയുടെ പ്രസംഗവും തുടർന്ന് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയും ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും

ഇതിന് ഒരുക്കങ്ങൾ പൂർത്തിയായി

കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചായിരിക്കും ഇത്തവണ സ്വാതന്ത്ര്യ ദിനാഘോഷം

രോഗം കൂടുമ്പോൾ മരണ നിരക്ക് കൂടുമെന്നും കോവിഡിനെതിരെ പ്രവർത്തിക്കാൻ കൂടുതൽ പേർ മുന്നോട്ടു വരണമെന്നും മന്ത്രി പറഞ്ഞു കോവിഡ് ബ്രിഗേഡിന്റെ ഓൺലൈൻ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി അടുത്ത മാസത്തോടെ കോവിഡ് വ്യാപനം കൂടുമെന്ന വിദഗ്ദ അഭിപ്രായത്തെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായും മന്ത്രി അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി സബിത ആനന്ദ്

ഡോക്ടർമാരുടേയും മറ്റു ആരോഗ്യ പ്രവർത്തകരുടേയും സേവനം കൂടുതലായി ആവശ്യമുണ്ടെന്നും ഈ സാഹചര്യത്തിലാണ് കോവിഡ് ബ്രിഗേഡ് എന്ന ആശയത്തിന് രൂപം നൽകിയതെന്നും മന്ത്രി അറിയിച്ചു മതിയായ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ സന്നദ്ധ പ്രവർത്തകരെ സജ്ജമാക്കാനാണ് ബ്രിഗേഡ് ആവിഷ്കരിക്കുന്നത്

മോഡേൺ മെഡിസിൻ ആയുർവേദ ഡെന്റൽ ഹോമിയോ ഡോക്ടർമാർ നഴ്സുമാർ പാരാമെഡിക്കൽ സ്റ്റാഫ് എം എസ് ഡബ്ല്യു എം ബി എ എം എസ്

എച്ച് എ ബിരുദധാരികളും സന്നദ്ധസേവകരും കോവിഡ് ബ്രിഗേഡ് സാമൂഹ്യ സേനയിൽ ചേരാൻ രംഗത്തുവരണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി രുര സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെയും സമ്പർക്ക രോഗികളുടേയും എണ്ണം വർധിക്കുന്നു

തിരുവനന്തപുരത്ത് വൻ വർധനയാണ് രോഗികളുടെ എണ്ണത്തിൽ

രെ കോട്ടയം മൂലവട്ടത്ത് ചൊവ്വാഴ്ച മരിച്ച ചിറത്തറയിൽ മേരിക്കുട്ടിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു

ഇദ്ദേഹത്തെ മഞ്ചേരി ഗവ

രുമ കോഴിക്കോട് ജില്ലയിൽ ലാർജ് ക്ലസ്റ്ററുകളിൽ കോവിഡ് രോഗികൾ കുറയുന്നു നിലവിലെ ലാർജ് ക്ലസ്റ്ററുകളായ ഒളവണ്ണ വടകര നാദാപുരം ഏറാമല എന്നിവിടങ്ങളിലാണ് രോഗികളുടെ എണ്ണം കുറഞ്ഞത്

രുമ കണ്ണൂർ കല്ല്യാശ്ശേരിയിൽ ഒരു കുടംബത്തിലെ എട്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ പഞ്ചായത്ത് കൂടുതൽ ജാഗ്രതയിലാണ്

സികളായി പ്രവർത്തിക്കുന്നതിനു ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ സൌകര്യങ്ങൾ ഒരുക്കണമെന്ന് കളക്ടർ നിർദേശം നൽകി രുമ കോട്ടയം ജില്ലയിലെ മത്സ്യവിപണന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ മാർക്കറ്റുകളുടെയും പ്രവർത്തനത്തിൽ കോവിഡ് എല്ലാ പ്രതിരോധ മുൻകരുതലുകൾ ഉറപ്പാക്കുന്നതിനായി ജില്ലാ കലക്ടർ ജാഗ്രതാ കമ്മിറ്റികൾ രൂപീകരിച്ചു മാർക്കറ്റുകളിൽ സ്വീകരിക്കേണ്ട പ്രതിരോധ മുൻകരുതലുകൾ സംബന്ധിച്ച വിശദമായ മാർഗനിർദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട് അതത് സ്ഥലങ്ങളിലെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിയാണ് ജാഗ്രതാ കമ്മിറ്റി കൺവീനർ

പ്രതിദിനം പത്ത് ലക്ഷം പരിശോധനകൾ നടത്തുക എന്ന ലക്ഷ്യത്തിലേക്കാണ് രാജ്യം മുന്നേറുന്നത് ദേശ ലോകത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം രണ്ടര ലക്ഷത്തിലേറെയായി

ക്യാപ്റ്റൻ എസ്

അഞ്ചു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദേശം നൽകിയിട്ടുണ്ട് രുമ പാലക്കാട്ജില്ലയിൽ മഴക്കെടുതിയെ തുടർന്ന് തുറന്ന നാലു ദുരിതാശ്വാസ ക്യാമ്പുകൾ അടച്ചതായി ദുരന്തനിവാരണ അതോറിറ്റി അറിയിച്ചു

രേര കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി മഴയ്ക്ക് ശമനമുണ്ടായതോടെ മറ്റിടങ്ങളിലേക്ക് മാറിത്താമസിച്ചവരിൽ കൂടുതൽ പേരും സ്വന്തം വീടുകളിലേക്ക് മടങ്ങി

രുമ കാലവർഷം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് ഖനന പ്രവർത്തനങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ ഏർപ്പെടുത്തിയിരുന്ന നിരോധനം കലക്ടർ പിൻവലിച്ചു

മുൻ വർഷങ്ങളിൽ നല്ലൊരു ശതമാനം കുട്ടികൾ കേരളത്തിനു പുറത്തുപോയി പഠിക്കുകയായിരുന്നു പതിവ് എന്നാൽ ഇത്തവണ കോവിഡ് മഹാമാരിമൂലം കുട്ടികൾക്ക് പുറത്തുപോയി പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നും ഉമ്മൻചാണ്ടി കത്തിൽ പറഞ്ഞു രുമ പാരിസ്ഥിതിക ആഘാത വിലയിരുത്തൽ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയ കരട് വിജ്ഞാപനം സഹകരണ ഫെഡറലിസത്തിനെയും അധികാര വികേന്ദ്രീകരണത്തെയും തുരങ്കം വയ്ക്കുന്നതാണെന്ന് മുൻകേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രി ജയറാം രമേശ് പറഞ്ഞു

എ കരട് വിജ്ഞാപനം എന്ന വിഷയത്തിൽ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് തിരുവനനന്തപുരത്ത് സംഘടിപ്പിച്ച വെബിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പദ്ധതികളുടെ ഇരകളാകുന്നവർക്ക് പോലും പരാതിപ്പെടാൻ കഴിയില്ലെന്നാണ് കരട് വിജ്ഞാപനം പറയുന്നതെന്നും ജയറാം രമേശ് അഭിപ്രായപ്പെട്ടു രുമ കോഴിക്കോട് ജില്ലയിലെ മലബാർ വന്യ മൃഗ സങ്കേതത്തിനു ചുറ്റും ഇക്കോ സെൻസിറ്റീവ് ബഫർസോണായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി പുറത്തിറക്കിയ കരട് വിജ്ഞാപനം അശാസ്ത്രീയവും കർഷക വിരുദ്ധവുമാണെന്ന് എം കെ രാഘവൻ സംസ്ഥാനത്തെ മലയോരങ്ങളിലെ എംപി

കർഷകരെയും മറ്റ് അനുബന്ധ മേഖലയിലെ ജനങ്ങളെയും കൃഷി മേഖലയെയും ബാധിക്കുന്ന ഈ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഉദാസീനത അവസാനിപ്പിക്കാൻ അടിയന്തരമായി കേന്ദ്രം ഇടപെടണമെന്നും കരട് വിജ്ഞാപനം നടപ്പാക്കുന്നതിൽ നിന്ന് ഗവൺമെന്റ് പിന്തിരിയണമെന്നും എം

രുര കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റും ഉയർത്തി പിടിക്കുന്നത് അഴിമതിയുടെ രാഷ്ട്രീയമാണെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു

ജെ

ദേശീയ നിർവ്വാഹക സമിതി അംഗം സി കെ പദ്മനാഭൻ കണ്ണൂരിൽ നടത്തിയ സത്യാഗ്രഹ സമരത്തിന്റെ ഭാഗമായ വിർച്വൽ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രുമ കോഴിക്കോട് ജില്ലയിലെ അമ്പത് ശതമാനം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഈ മാസം ശുചിത്വ പദവി പ്രഖ്യാപനം നടത്തുമെന്ന് ഹരിത കേരളം ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു

ഇന്ന് കൊയിലാണ്ടി നഗരസഭയും ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തും നാളെ കോഴിക്കോട് കോർപ്പറേഷനും ചോറോട് കുന്നുമ്മൽ മരുതോങ്കര കടലുണ്ടി നടുവണ്ണൂർ ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്തുകളും ശുചിത്വ പദവി പ്രഖ്യാപനം നടത്തും രുമ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ഉൽപാദിപ്പിക്കുന്ന കർഷകരുടെ പച്ചക്കറികൾക്ക് വിപണി കണ്ടെത്താൻ ഹോർട്ടികോർപ്പ് കോഴിക്കോട് ജില്ലയിൽ പുതുതായി അഞ്ച് സ്റ്റാളുകൾ ഓണത്തിനു മുമ്പായി തുറക്കും

സംഭവത്തിൽ സഹോദരൻ ആൽബിൻ ബെന്നിയെ പൊലീസ് അറസ്റ്റു ചെയ്തു